ബ്രിട്ടീഷ് കോടതി ഇന്ന് വിധി പറയും

പാലക്കാടിന് കലാകിരീടം അടുത്ത കലോത്സവം കാസർഗോട്ട്

കൂടുതൽ വിവരങ്ങളുമായി ഗ്രോപകുമാർ

ഇരു സഭകളുടെയും സുഗമമായ നടത്തിപ്പിന് രാഷ്ട്രീയ പാർട്ടികളുടെ പൂർണ്ണ സഹകരണം കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെടും രാജ്യസഭയുടെ സുഗമമായ നടത്തിപ്പിന് രാജ്യസഭ അദ്ധ്യക്ഷൻ എം വെങ്കയ്യനായിഡുവും ഇന്ന് സർവ്വകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട് ഗവൺമെന്റിനെതിരെ പോരാടാൻ പ്രതിപക്ഷ പാർട്ടികളും യോഗം വിളിച്ചിട്ടുണ്ട് ലോകസഭയുടെ പ്രവർത്തനം സുഗമമാക്കാൻ രാഷ്ട്രീയ പാർട്ടികളുമായി സ്പീക്കർ സുമിത്രമഹാജൻ നാളെ ചർച്ച നടത്തും

ന്യൂസ് ഡസ്ക് ആകാശവാണി

ഛത്തീസ്ഗഡ് മ്യൂപ്പ്ദേശ് രാജസ്ഥാൻ തെലങ്കാന മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലെ വോട്ടെണ്ണലാണ് നാളെ നടക്കുന്നത് വോട്ടെണ്ണ്ണ്ലിന്റെ വിശദാംശങ്ങൾ തൽസമയം ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ ആകാശവാണി പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്

ഒരു വർഷത്തെ ഇടവേളയ്ക്കു ശേഷമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ സംയുക്ത പരിശീലനത്തിന് തയാറെടുക്കുന്നത്

ഇത് ഏഴാം തവണയാണ് ഇന്ത്യയും ചൈനയും സംയുക്ത സൈനികാഭ്യാസം നടത്തുന്നത് ഭീകരവാദത്തെ ചെറുക്കുക എന്ന ലക്ഷ്യംവച്ചാണ് അഭ്യാസം നടത്തുന്നതെന്ന് ഇരുരാജ്യങ്ങളുടെയും സൈനിക വൃത്തങ്ങൾ അറിയിച്ചു

ഗൊരഖ്നാഥ് മഠത്തിന് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപ്നമാണ് ഇത് ഇന്നലെ വൈകുന്നേരമാണ് രാഷ്ട്രപതി ഗൊരഖ്പൂരിൽ എത്തിയത്

തലസ്ഥാനമായ നെയ്പെയ്ത്യൂവിലും യംങ്കൂണിലുമെത്തുന്ന രാഷ്ട്രപതി മ്യാൻമാർ രാഷ്ട്രത്തലവൻ യുവിൻ വിമയുന്നുമായും സ്റ്റേറ്റ് കൌൺസിൽ ആങ് സാങ് സ്യൂകിയുമായും കൂടിക്കാഴ്ച നടത്തും

കൂടുതൽ വിവരങ്ങളുമായി ഗ്നോപ്പകുമാർ

ഇന്നത്തെ വിധി പ്രതികൂലമാണെങ്കിൽ മേല്ക്കോടതിയിൽ അപ്പീൽ നല്കാനുള്ള അവസരം മല്യക്ക് ലഭിച്ചേക്കും

വായ്പയെടുത്ത മുഴുവൻ പണവും തിരിച്ചടയ്ക്കാൻ സന്നദ്ധനാണെന്ന് മല്യ കഴിഞ്ഞദിവസം ട്വീറ്റ് ചെയ്തിരുന്നു

കോഴിക്കോടാണ് രണ്ടാമത് കൂടുതൽ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ

നിലയ്ക്കലിൽ നിന്നും കാനനപാതയിലേക്കുള്ള വഴിയിൽ കാട്ടാനയിറങ്ങിയത് സിസിടിവിയിൽ പതിഞ്ഞതോടെയാണ് സുരക്ഷാ മുൻകരുതലെടുത്തത്

ഉരക്കുഴി പാണ്ടിത്താവളംപ്താന്തോട് ഇലവുങ്കൽ പ്ലാപ്പള്ളി ളാഹ പുല്ലുമേട് എന്നിവിടങ്ങളിൽ കാട്ടാനയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് വനം വകുപ്പ് അറിയിച്ചു

ഐ എസ്

തയ്യാറാകണമെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ഹൻസ്രാജ് ഗംഗാറാം ആഹിർ വ്യോമസുരക്ഷ പ്രകൃതിക്ഷോഭം വി ഐ പ്പി സുരക്ഷ എന്നീ മേഖലകളിൽ സി

എസ്

പുതിയ സാങ്കേതിക വിദ്യ മാതൃക പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുമെന്ന് മഹാരാഷ്ട്ര വ്യവസായ മന്ത്രി സുഭാഷ് ദേശായി പറഞ്ഞു പല കഠിന വിഷയങ്ങളേയും ലഘൂകരിക്കാൻ ദ ഡി സാങ്കേതിക വിദ്യ സഹായകമാകുമെന്നും അദ്ദേഹം പറഞ്ഞു മാനുഷികമായ പിഴവുകൾ കുറയ്ക്കാൻ സാങ്കേതിക വിദ്യ സഹായകമാകുമെന്നും അദ്ദേഹം കൂട്ടിചേർത്തു ആരോഗ്യം ദന്തചികിത്സ മോട്ടോർ വാഹനം വ്യോമയാനം ആഭരണം നിർമ്മാണം എന്നീ മേഖലകളിൽ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരാൻ സാങ്കേതിക വിദ്യ സഹായകമാകുമെന്നും ശ്രീ ദേശായി വൃക്തമാക്കി

ആഴ്ച് നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടിയിൽ ശ്രീരാമുന്നേയും് സീതാ ദേവിയുടേയും വിവാഹ അവതരണം ഭക്തി നിർഭരമായി കൊണ്ടാടും